പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വിക സന പങ്കാളിത്ത കോൺക്ലേവ് ഉച്ചകഴിഞ്ഞ് തിരുവനന്ത പുരത്ത് സംസ്ഥാനത്തെ വൈദ്യുതിനില വിലയിരുത്താൻ

സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാ തുറമുഖങ്ങളിലും എമിഗ്രേഷൻ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി മന്ത്രി വാർത്താസ മ്മേളനത്തിൽ പറഞ്ഞു അഴീക്കൽ ബേപ്പൂർ വിഴിഞ്ഞം തുറമുഖങ്ങളിൽ കസ്റ്റംസ് സംവിധാനവും ആരംഭിക്കും ഈ തുറമുഖ ങ്ങളുടെ ആഴം പത്ത് മീറ്റർ വർദ്ധിപ്പിക്കാനും തീരു മാനമെടുത്തിട്ടുണ്ട് വിദേശ കപ്പലുകളെയും ഇന്ത്യൻ കപ്പ ലുകളെയും തുറമുഖങ്ങളിലേക്ക് ആകർഷിക്കാൻ അവ അന്താരാഷ്ട്ര നില്വാരത്തിലേക്ക് ഉയർത്തും സംസ്ഥാ നത്തിന്റെ തീരത്ത് ചെറിയ കപ്പലുകളുടെ നിർമ്മാണ ശാലകൾ തുടങ്ങാനും കപ്പലുകളുടെ അറ്റകുറ്റപ്പണി നട ത്താനും സംവിധാനം തുടങ്ങും കടൽ മണൽഖനനവും വില്പനയും ഓൺലൈനിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറി യിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് ചരക്കുനീക്കം വിപുലപ്പെടു ത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോർട്ട് ട്രേഡ് മീറ്റിംഗ് നടത്തും

പുനർനിർമ്മാണത്തിൽ ദേശീ യ രാജ്യാന്തരതല ഏജൻസികളുടെ വായ്പകളും സാമ്പത്തികസാങ്കേതിക സഹായങ്ങളും ലഭ്യമാക്കുന്ന തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായാണ് കോൺക്ലേവ് സംഘ ടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി പിജയൻ നവ കേരള നിർമ്മാണ കർമ പദ്ധതി വിശദീകരിച്ച് സംസാ രിക്കും ലോക ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് കെ

ഡബ്ലിയു ബാങ്കൻഗ്രൂപ്പെ ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപറേഷൻ ഏജൻസി ഫ്രഞ്ച് ഡവലപ്മെന്റ് ഏജൻസി യു

പി തുടങ്ങിയ ദേശീയ അന്തർദേശീയ ്വികസന പങ്കാളികൾ കോൺക്ലേവിൽ പങ്കെടുക്കും

ബി ഉന്നതതലയോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും മഴക്കുറവും സെൻട്രൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കുറവും കണക്കിലെടുത്ത് ലോഡ് ഷെഡ്ഡിംഗ് അടക്കം നിയന്ത്രണം കൊണ്ടുവരാൻ യോഗം ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തേക്കും

അതേസമയം ഇന്ന് ചേരുന്ന പി എസ് സി യോഗം ശിവരഞ്ജിത്ത് അടക്കം പ്രതികൾ പൊലീസ് കോൺസ്റ്റ് ബിൾ പരീക്ഷ യിൽ ആദ്യ റാങ്കുകൾ നേടിയതിനെപ്പറ്റി ചർച്ച ചെയ്യും

അനിശ്ചിത കാലത്തേയ്ക്കാണ് ആറ് പേരെയും സസ്പെൻഡ് ചെയ്തത് ലലലലല യൂണിവേഴ്സിറ്റി കോളജിലെ അക്രമികളായ വിദ്യാർത്ഥികൾക്ക് നിയമം അനു ശാ സിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആവശ്യപ്പെ ട്ടു തലസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ കോളജിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധർ വിദ്യാർത്ഥികളായി തുടരുന്നത് നാടിന് നാണക്കേടാണെന്നും ക്രിമിനൽ കൂട്ടങ്ങളുടെ കേന്ദ്രമായി യൂണിവേഴ്സിറ്റി കോളജ് മാറി യെന്നും സുധീരൻ കുറ്റപ്പെടുത്തി യൂണിവേഴ്സിറ്റി കോളജിലേക്ക് എസ് ഡി പി ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം

കെ ടി ജലീലിന്റെ ഔദ്യോഗിക വസതിക്കു മുന്നിൽ കെ എസ് യു വിദ്യാർത്ഥികൾ

യൂണിവേഴ്സിറ്റി കോളജിലെ വധശ്രമ ക്കേസിൽ പ്രതികളായവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു വെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം

ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി ലഭിച്ച പരാതിയി ലാണ് ട്രിബ്യൂണലിന്റെ ഇടപെടൽ പരാതിയിൽ അന്തി മവിധിയ്ക്ക് വിധേയമായിട്ടായിരിക്കണം നിയമനമെന്നും ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു

മുതിർന്ന ബി ജെ പി നേതാ ക്കളായ എൽ

ആദ്യം ഹർജി നൽകിയ പത്ത് വിമത എം എൽ എമാരുടെ പരാതിക്കൊപ്പം ഇവരുടെ പരാ തിയും പരിഗണിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പ അധ്യക്ഷ നായ ബെഞ്ച് അറിയിച്ചത്

കേസ് പിൻവലിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനിൽ നിന്ന് കോടതിചെലവ് ഈടാക്കാ നാവശ്യപ്പെടുമെന്ന നിലപാടിൽ നിന്ന് യു ഡി എഫ് പിൻമാറിയതിനെ തുടർന്നുണ്ടായ സാഹചര്യവും കോടതി പരിശോധിയ്ക്കും

കെട്ടിടത്തിനടിയിൽ പെട്ട ഏഴ് സൈനികരെ രക്ഷിക്കുന്നതിന് ശ്രമം തുടരു കയാണ്

രക്ഷാപ്രവർത്തന ത്തിന്റെ ചുമതല ദേശീയ ദുരന്ത പ്രതികരണ സേന ഏറ്റെടുത്തു ഇന്നലെ വൈകുന്നേരം നാലിനായിരുന്നു സംഭവം

യൂണിവേഴ്സിറ്റി കോളജ് സംഭവത്തിൽ കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദൃത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആന്തൂർ വിഷയത്തിൽ മുൻസിപ്പാലിറ്റിയെ സഹായി ക്കുന്ന നിലപാടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നു ണ്ടാകുന്നതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു മരിച്ച പ്രവാസി വൃവസായി സാജന്റെ കുടുംബത്തിന് എല്ലാ നിയമസ ഹായവും നൽകുമെന്നും അദ്ദേഹം വൃക്തമാക്കി ലലലലലല അഴിമതിയുടെ അഴുക്കു ചാലായി കോഴിക്കോട് കോർപറേഷൻ മാറിയതായി കെ പി സിസി പ്രസിഡണ്ട് ആരോപിച്ചു അമൃത് പദ്ധതി നട്ത്തിപ്പിൽ അഴിമതി ആരോപിച്ച് കോഴിക്കോട് ഡി സി സി യുടെ നേതൃത്വ ത്തിൽ കോർപറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഫറൂഖ് ഖാനെ ജമ്മുകശ്മീർ ഗവർണറുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിച്ചു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ താൽക്കാ ലിക ചുമതല അഡ്മിനിസ്ട്രേറ്ററുടെ മുഖ്യ ഉപദേ ഷ്ടാവ് മിഹിർ വർദ്ധന് നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

അബ്ദുള്ളക്കുട്ടിക്ക് കോഴിക്കോട്ട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കു കയായിരുന്നു അദ്ദേഹം മുങ്ങുന്ന ക്പ്പലിൻരെ കപ്പ ലിന്റെ കപ്പിത്താനാകാൻ കോൺഗ്രസ് ദേശീയ നേതൃ ത്വത്തിൽ ആരും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറ ഞ്ഞു

എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണമെന്ന ജാമ്യ വ്യവസ്ഥയെ തുടർന്നാണ് ബിനോയ് ഇന്ന് ഓഷിവാര പൊലീസ് സ്റ്റേഷനിൽ എത്തിയത്

സംഭവസ്ഥലത്ത് വെച്ച് പിടിയി ലായ നഈം അലിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംഘത്തെ കുറിച്ച് വിവരം ലഭിച്ചത്

ഇംഫാൽ സ്വദേശി അബ്ദുൾ സലാമിനെയാണ് റിമാൻഡ് ചെയ്തത് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസ് നാളെ പാലാ ജുഡീഷ്യൽ ഫസ്റ്റ്ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗ ണിക്കും കുറ്റപത്രം പ്രതിഭാഗത്തിന് നൽകുന്നതടക്കം വിചാരണയ്ക്ക് മുന്നോടിയായ നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു

കോഴിക്കോട് ശാരദാമഠം പ്രസിഡന്റായും സേവ നമനുഷ്ഠിച്ചിട്ടുണ്ട്

സി ബസും കാറും കൂട്ടിയിടിച്ച് നാലുപേർക്ക് പരിക്കേറ്റു കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് എറണാ കുളത്തേക്ക് പോവുകയായിരുന്ന ബസും എതിരെ വന്ന കാറും ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് അപകട ത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ പാനൂരിൽ അപകടത്തിൽ മരിച്ച പ്രമുഖ മുജാഹിദ് പണ്ഡിതനും പ്രഭാഷകനുമായ ഡോക്ടർ കെ

ഓഗസ്റ്റ് ആദ്യവാരം ടെർമിനൽ തുറ ന്നുകൊടുക്കും

ഈ വർഷത്തെ ജലകായികമേളകൾക്കു തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന്

കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രി വളപ്പിൽ കഴിഞ്ഞദിവസം കണ്ടെത്തിയ മൃത ദേഹം തൃക്കൊടിത്താനം സ്വദേശി പൊന്നമ്മയുടേതു തന്നെ യാണെന്ന് ഉറപ്പാക്കാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തു മെന്ന് പൊലീസ് അറിയിച്ചു തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൊലപാതകമെന്ന നിലയിൽ ഗാന്ധിനഗർ പൊലീസ് അന്വേഷണം ആരംഭിച്ചു